പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി നല്ല പദ്ധതികൾക്ക് സ്ഥകാര്യ പങ്കാളിത്തം തേടുന്നതിൽ തെറ്റില്ലെന്നും പിണറായി വിജയൻ

എ

എ നിയമം നിലനിൽക്കുമെന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഐ

അശോക് യാദവ് യുവാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സി

ഐ കിരാത നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തെ മാവോയിസ്റ്റ് ഭീഷണി സംബന്ധിച്ച് ധവളപത്രം ഇറക്കാൻ ഗവൺമെന്റ് തയാറാകണമെന്ന് ബി ജെ

ഇവർക്കെതിരെ യു എ

എ നിയമം ചുമത്തിയതായാണ് റിപ്പോർട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് വൈകിട്ടാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കിയത്

കോഴിക്കോട് കോഴിക്കോട് ലഘുലേഖ വിതരണം ചെയ്ത് അറസ്റ്റിലായ രണ്ട് പേർക്കെതിരെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് യു എ

ചുമത്തിയതെന്ന് ഐ

ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് പൂർവ് ശീ അശോക് യാദവ് വ്യക്തമാക്കി കാനം രാജേന്ദ്രൻ മാവോവാദി അനുകൂല ലഘൂലേഖ വിതരണം ചെയ്തെന്ന് ആരോപിച്ച് കോഴിക്കോട് രണ്ട് യുവാക്ക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സി

ഇത്തരം കേസുകളിൽ യു എ

ചുമത്തരുതെന്നും ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മാത്രമേ ഇത്തരം നിയമങ്ങൾ ചുമത്താൻ പാടുള്ളൂവെന്നുമാണ് നിലവിലുള്ള നിർദ്ദേശമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു

അറസ്റ്റ് എൽ ഡി എഫ് ഗവൺമെന്റിന് ഭൂഷണമല്ലെന്നും ശ്രീ

ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള സംവിധാന പ്രകാരം കേസെടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ വിചാരണയില്ലാതെ തടങ്കലിൽ വയ്ക്കുന്ന ഒരു നിയമത്തോടും യോജിക്കുന്നില്ലെന്നും ശ്രീ

എ

ചുമത്തി അറസ്റ്റ് ചെയ്തത് കിരാത നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കുന്ന ഗവൺമെന്റാണിതെന്നും അദ്ദേഹം ആരോപിച്ചു ആശയപ്രകടനം നടത്തുന്നവർക്കെതിരെയല്ല യു എ

എ

ഗവൺമെന്റി ന്റെ കിരാത മുഖമാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നതെന്നും ഗവൺമെന്റ് എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും അടിച്ചമർത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഗവൺമെന്റിന്റെ മനുഷ്യവേട്ട അവസാനി പ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

രമേശ് സംസ്ഥാന മുഖ്യധാര പാർട്ടികളുടെ മാർവോയിസ്റ്റ് അനുകൂല നിലപാട് അപലപനീയമെന്ന് ബി ജെ

കേരളത്തിൽ മാവോയിസ്റ്റുകൾ സജീവമാണെന്നതിന്റെ തെളിവാ ണ് അട്ടപ്പാടി സംഭവമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ഐ എം നുള്ളിൽ മാവോയിസ്റ്റ് അനുകൂലികൾ ഉണ്ടെന്നും ഇതിന്റെ തെളിവാണ് രണ്ടു പാർട്ടി പ്രവർത്തകർ മാവോയിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ കോഴിക്കോട് അറസ്റ്റിലായ സംഭവമെന്നും എം

എൽ ദത്തു അട്ടപ്പാടിയിലെ വെടിവെയ്പ്പിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന ഗവൺമെന്റിനോട് റിപ്പോർട്ട് തേടുമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ശ്രീ എച്ച്

ഇതുണ്ടാകാ ത്ത സാഹചര്യത്തിലാണ് ഇതു സംബന്ധിച്ച വിശദീകരണം തേടുന്നതെ ന്ന് ജസ്റ്റിസ് ശ്രീ

മനുഷ്യാവകാശ സംരക്ഷണത്തിനായി കേരളാ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങ ളിൽ സംതൃപ്തിയുണ്ടെന്ന് ജസ്റ്റിസ് ശ്രീ ദത്തു പറഞ്ഞു

കോഴിക്കോട് കല്ലുത്താൻകടവ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ താക്കോൽദാനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നല്ല പദ്ധതികൾക്ക് സ്വകാര്യ പങ്കാളിത്തം തേടുന്നതിൽ തെറ്റില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല ശബരിമല മണ്ഡലകാലം ്ആരട്ടിക്കുന്നതിന് മുമ്പായി തീർത്ഥാടകർ ക്കുള്ള എല്ലാ അടിസ്ക്കുന് സൌകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സൂരേന്ദ്രൻ മൃണ്ഡലകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തു ന്നതിന് പന്തളത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം ശബരിമലയുടെ മൂലസ്ഥാനമായ പന്തളത്തിന് അർഹമായ പ്രാധാന്യമാണ് ഗവൺമെന്റ് നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു തിരുവിതാംകൂർ ദേവസം ബോർഡ് പ്രസിഡന്റ് എ

ജില്ലാ കളക്ടർ പി

നൂഹ് ജില്ലാ പൊലീസ് മേധാവി ജി ജയദേവ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

ശൈലജ സംസ്ഥാനത്ത് ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹെപ്പറ്റോളജി യൂണിറ്റ് ആരംഭിക്കുമെന്ന് മന്ത്രി കെ

കരൾ രോഗം വർധിക്കുന്ന സാഹചര്യത്തിൽ രോഗികൾക്ക് പ്രത്യേകമായുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് ഹെപ്പറ്റോളജി യൂണിറ്റ് ആരംഭിക്കുന്നത് കൂടാതെ മെഡിക്കൽ കോളേജിലെ കരൾമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പുനരാരംഭിക്കാനും ഈ യൂണിറ്റ് സഹായിക്കും ഇതിന്റെ ഭാഗമായി ഒരു പ്രൊഫസർ തസ്തികയും ഒരു അസി പ്രൊഫസർ തസ്തികയും സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയതായും മന്ത്രി വ്യക്തമാക്കി

ആൽഫൈൻ വധക്കേസിൽ പൊലീസ് പ്രികസ്റ്റഡിയിൽ കഴിയുന്ന ജോളിയെ അന്വേഷണസംഘം കോട്ടതിയില്ലത്തിക്കാതെ റിമാൻഡ് റിപ്പോർട്ട് നൽകി അതേസമയം മുഞ്ചുട്ടിയിൽ മാത്യു കൊല്ലപ്പെട്ട കേസി ഒന്നാം പ്രതിയായ ജോളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ താമരശ്ശേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി അനുമതി നല്കി

ദുബായിൽ നിന്ന് ഗോഎയർ വിമാനത്തിൽ എത്തിയ കോഴിക്കോട് സ്വദേശികളായ രണ്ട് പേരിൽ നിന്നാണ് സ്വർണ്ണം പിടിച്ചെടുത്തത് എഴുപത് ലക്ഷത്തോളം രൂപ വില വരുമെന്ന് അധികൃതർ അറിയിച്ചു

അപകടം മൂലമുണ്ടാകുന്ന അംഗവൈകലൃത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയും ഗവൺമെന്റ് ഉത്തരവായി

ചികിത്സാപരിധിയിൽ പ്രസവസംബന്ധമായ ചികിത്സ കൂടി ഉൾപ്പെടുത്തി യിട്ടുണ്ട് അപകടം മൂലമുണ്ടാകുന്ന അംഗവൈകലൃത്തിന് ഒരു ലക്ഷം വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും

ജലീൽ ഡിഗ്രി പഠനത്തോടൊപ്പം വിദ്യാർഥികൾ കൃതൊഴിൽ നൈപുണ്യവും സ്വന്തമാക്കണമെന്ന് മന്ത്രി ഡോ

മലപ്പുറം ഗവൺമെന്റ് കോളജിൽ പി

ഉന്നത വിദ്യാഭ്യാസ് ർംഗത്തിന് മുന്തിയ പരിഗണന യാണ് ഗവൺമെന്റ് നൽകുന്നത്

വാഹന പരിശോധന സംസ്ഥാനത്ത് വാഹന പരിശോധനയ്ക്കായി അത്യാധുനിക മാർഗങ്ങൾ അവലംബിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി എ

ശശീന്ദ്രൻ പറഞ്ഞു തൃശൂരിൽ അസിസ്റ്റൻറ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പുതിയ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇതിന് വാഹനങ്ങൾ തടഞ്ഞുനിർത്തി പരിശോധിക്കേണ്ടി വരുന്നില്ലെന്നതിനാൽ ഗതാഗത തടസ്സം ഒഴിവാക്കാം

പൊലീസ് ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ രണ്ടാം സ്ഥാനത്തും എൻസിഡിസി കുമരകം തുഴഞ്ഞ ദേവസ് ചുണ്ടൻ മുന്നാം സ്ഥാനത്തും എത്തി സംസ്ഥാനത്തെ ജലോത്സവങ്ങളെ കോർത്തിണക്കി നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഒൻപതാം മത്സരമാണ് പുളിങ്കുന്നിൽ നടന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പൂഴ പ്രതിനിധി രവി മാരാരി